ഭീകരവാദവും അഴിമതിയും പട്ടിണിയും തുടച്ചുനീക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് എൻ

എ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മഹാരാഷ്ട്രയിലെ നക്സൽ ബാധിത മേഖലയായ ഗദ്ചരോളി ചിമൂർ മണ്ഡലത്തിലെ നാലു പോളിംഗ് ബൂത്തുകളിൽ ഇന്ന് റീ പോളിംഗ്

എഫിന് നേരെ ആക്രമണം നടത്തിയ കേസിലെ അഞ്ചാം പ്രതിയെ ഇന്നലെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു

ഡെമോക്രാറ്റുകൾക്ക് വിജയം

പോയിന്റ് നിലയിൽ ഹൈദ്രാബാദ് ചെന്നൈയ്ക്ക് തൊട്ടുപിന്നിൽ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജമ്മുകാശ്മീരിലെ കത്വ ഉത്തർപ്രദേശിലെ അലിഗഡ് മൊറാബാദാബാദ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു സബ് കാ സാത് സബ് കാ വികാസ് എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമത്തിനുവേണ്ടിയാണ് എൻ

എ ഗവൺമെന്റ് പ്രവർത്തിച്ചതെന്ന് ശ്രീ

രാജ്യത്ത് നിന്ന് ഭീകര പ്രവർത്തനങ്ങളും അഴിമതിയും പട്ടിണിയും തുടച്ചു നീക്കുവാൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ

ഗുജറാത്തിലെ ഗാന്ധിനഗർ കലോൾ പട്ടണത്തിൽ ബി ജെ പി അദ്ധ്യക്ഷൻ അമിത്ഷാ ഇന്നലെ റോഡ്ഷോ സംഘടിപ്പിച്ചു കോൺഗ്രസിലെ സിറ്റിംഗ് എം

കോൺഗ്രസ് അസാമിന് പ്രത്യേക പദവി നൽകിയിരുന്നെങ്കിലും പിന്നീട് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ബി ജെ പി ഈ പദവി നീക്കം ചെയ്തുവെന്നും ശ്രീമതി പ്രിയങ്ക പറഞ്ഞു രാജ്യത്ത് വലിയ പരിവർത്തനമുണ്ടാക്കാനാണ് എസ് പി ബി

പി ആർ

ഉത്തർപ്രദേശിലെ റാം പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

തന്റെ ഭരണകാലത്ത് യു പിയുടെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ ലബ്ദിക്കുശേഷം ഏഴ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാജ്യത്തെ ദളിതരും കർഷകരും പാവപ്പെട്ട ജനങ്ങളും ഇപ്പോഴും നീതിക്കുവേണ്ടി കാത്തിരിക്കുകയാണെന്നും ശ്രീ

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജെ പി എന്നീ പാർട്ടികൾ സി ബി ഐയെയും എൻഫോഴ്സ്മെന്റ് ഡയറ്റ്ട്ടറേറ്റിനെയും ദുരുപയോഗം ചെയ്യുകയാണെന്നും പ്രതീപക്ഷ പാർട്ടികളെ തെറ്റായ കേസ്സുകളിൽ വലിച്ചിടാൻ ശ്രമിക്കുകയാണെന്നും ബി

പി അധ്യക്ഷ മായാവതി പറഞ്ഞു ഛത്തീസ്ഗഡിലെ ചമ്പ ജില്ലയിൽ ജാൻഗിറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എൻ

വൈ പദ്ധതി നടപ്പാക്കാൻ തയ്യാറായില്ലെന്ന് അവർ ആരോപിച്ചു

ആദ്യഘട്ടത്തിൽ വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു

ജെ പി നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്രഫഡ് നാവിസ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മധ്യവർഗത്തിന്റെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നും ശ്രീ ഫഡ് നാവിസ് പറഞ്ഞു

സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നുളും കേരളത്തിൽ പര്യടനം നടത്തുമെന്ന് കെ

സി

ഇന്ന് രാത്രി തിരുപ്നന്തപുരത്ത് എത്തുന്ന അദ്ദേഹം നാളെ രാവിലെ പത്തനിപ്പു്രത്തും പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധ ചെയ്യും തുടർന്ന് അന്തരിച്ച മുൻ മന്ത്രി കെ

മാണിയുടെ പാലായിലെ വസതി സന്ദർശിച്ച ശേഷം വൈകിട്ട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും നാളെ രാത്രി തന്നെ കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന രാഹുൽ ഗാന്ധി മറ്റന്നാൾ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ യു ഡി എഫ് നേതാക്കളുമായി രാവിലെ കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് വയനാട്ടിൽ എത്തുന്ന അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും

എ അറസ്റ്റ് ചെയ്തു

എഫും തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് സി ആർ പി എഫ് ജവാന്മാരും മൂന്ന് തീവ്രവാദികളും കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ റേഷി ആണെന്ന് എൻ ഐ എ പ്രസ്താവനയിൽ പറഞ്ഞു ജയിഷേ ഈ ഭീകര സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് റേഷി എന്നു് എ പ്രസ്താവനയിൽ പറയുന്നു

വി പാറ്റ് സ്തിപ്പുകളെങ്കിലും എണ്ണിനോക്കണമെന്ന ആവശ്യത്തിലുറച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനായി വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആന്ധ്രമുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്

ചീഫ് ജസ്റ്റീസ് രജ്ഞൻ ഗോഗോയ അദ്ധ്യക്ഷനായ ബഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഈ വിഷയത്തിൽ പരമോന്നത കോടതിയെ സമീപിച്ചത് ചലച്ചിത്രം നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായത്

മലയാള വർഷത്തിലെ മേടമാസം ഒന്നാർ തീയതിയാണ് വിഷു ആഘോഷം സമൃദ്ധിയുടെയും നന്മക്കളുട്ടെയും കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന വിഷു മലയാളിക്ക് സർവ്വ ഐശ്വര്യവും കൈവരുന്ന പുണ്യദിനമാണ് വിഷുപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷു കണി ദർശനത്തിന് അഭൂതപൂർവ്വമായ ഭക്തജനത്തിരക്കനുഭവപ്പെട്ടു ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വം ജീവനക്കാരും പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്

ഗുരുവായൂർ സ്വദേശി തെക്കുംമുറി ഹരിദാസിന്റെ വക വഴിപാടായാണ് എല്ലാ വർഷവും വിഷു ദിവസം ക്ഷേത്രത്തിൽ നെയ്യ്വിളക്ക് തെളിയിക്കുന്നത് ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും വിഷുദർശനത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ധാരാളംപേർ ക്ഷേത്രദർശനത്തിനായി എത്തിയിട്ടുണ്ട്